യോഗം തീരുമാനിച്ചു അടിയന്തിര നടപടികൾക്ക് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി

വിഭാഗത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു

പുറപ്പെടുവിക്കാൻ ഗവ്ർണ്ണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭാ തീരുമാന്നും

ഗവർണർ ഇടപെടണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയെ വിളിച്ചു വരുത്തണമെന്നും ആവശ്യം

അന്വേഷണം നടത്താൻ കോടതി ഉത്തരവ്

കൂടുതൽ വിവരങ്ങളുമായി ലിൻസ സിറാജ് വോയിസ് സെക്രട്ടറിയേറ്റിൽ കഴിഞ്ഞ ദിവസ്സ്പ് ഉണ്ടായ തീപ്പിടിത്തവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടിക്ടൾ മുന്ത്രിസഭാ യോഗം വിലയിരുത്തി

തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ധനസഹായത്തോടെ ഭൂരഹിത രായ ഭവനരഹിതർ ലൈഫ് പദ്ധതിക്ക് പ്ലവാങ്ങുന്ന ഭൂമിയുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ക്ടിക്ക്ന്ന ലൈഫ് പദ്ധതിക്ക് വാങ്ങുന്ന ഭൂമിയുടെയും രജിസ്ട്ര്യേഷ്ട്രൻ ് സ്റ്റാമ്പ് ഡ്യൂട്ടി രജിസ്ട്രേ ഷൻ ഫീസ് എന്നിവ ഒഴിവാക്കും കേരള സർക്കാരിന്റെ കാമൂന്പിർപ്പ്ഹണ ചട്ടങ്ങളിൽ സമഗ്രമായ മാറ്റം വരുത്തുന്നതിന് സെക്രിട്ടുകി ്തല സമിതി സമർപ്പിച്ച കരട് ചട്ടങ്ങൾ പരിശോധിച്ച് ശുപാർശകൾ സമർപ്പിക്കുന്നതിന് എ

ബാലൻ ചെയർമാനായി മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കും

മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ മെഡിക്കൽ ദന്തൽ നഴ്സിഗ് ഫാർമസി നോൺ മെഡിക്കൽ എന്നീ വിഭാഗങ്ങളിലെഅധ്യാപകരുടെ ശമ്പള പരിഷ്കരണം മന്ത്രിസഭായോഗം അംഗീകരിച്ചു

സുധാകരൻ സെക്രട്ടേറിയറ്റ് പൊതുഭരണവകുപ്പ് പൊളിറ്റിക്കൽ വിഭാഗത്തിലു ണ്ടായ തീ പിടുത്തം സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം ചീഫ് എഞ്ചിനീയറുടെ പ്രാഥമിക റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചതായി മന്ത്രി ജി

പ്രാഥമിക നിഗമന പ്രകാരം അടച്ചിട്ട മുറിയ്ക്കിലെ വോൾഫാൻ ചൂടായി പ്ലാസ്റ്റിക് ഉരുകി സമീപമുണ്ടായിരുണ്ട് ക്ർട്ടനിലേക്കും ഷെൽഫി ലേക്കും പേപ്പറിലേക്കും വീണതാണ് ത്രീപിടുത്തത്തിന് കാരണമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് വിശദമായ അന്വേഷണം ക്ടിര്ത്ത്തിന് പൊതുമരാമത്ത് ചീഫ് ഇല ക്ട്രിക്കൽ എഞ്ചിനീയർ ്ളൂർഖ്പ്പടുന്ന ഉന്നതതല കമ്മിറ്റിയെ സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട് വിശദമായ പരിശോധനയ്ക്ക് ശേഷം അന്തിമ റിപ്പോർട്ട് സർക്കാരിലേക്ക് സമർപ്പിക്കുമെന്ന് മന്ത്രി അറിയിച്ചു

മുഖ്യമന്ത്രിയെ വിളിച്ചു വരുത്തണമെന്ന് ഗവർണർക്ക് നൽകിയ കത്തിൽ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു പ്രോട്ടോകോൾ ലംഘനം റെഡ് ക്രെസന്റ് കോഴ എന്നീ വിഷയങ്ങളിൽ സർക്കാരിൽ നിന്ന് റിപ്പോർട്ട് തേടണം സെക്രട്ടറിയേറ്റിൽ സ്വർണ്ണ കടത്തുമായി ബന്ധമുള്ള ഫയലുകൾ സൂക്ഷിക്കുന്ന പ്രോട്ടോക്കോൾ വിഭാഗത്തിലുണ്ടായ തീപ്പിടുത്തവും കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ചീഫ് സെക്രട്ടറിയെ വിളിച്ചു വരുത്തണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്

ഏറ്റവും വലിയ പ്രതിദിന വർദ്ധനയാണ്ടിത്

ഇന്ന് പത്ത് പുതിയ ഹോട്ട്സ്പോട്ടുകൾ

എല്ലാ കോവിഡ് പ്രോട്ടോകോളുകളും ലംഘിച്ചാണ് ഇന്നലേയും ഇന്നുമായി പലരും പൊതുനിരത്തുകളിലിറങ്ങി പ്രതിഷേധിച്ചത് പലരും മാസ്ക് ധരിക്കുകയോ സാമൂഹിക അകലം പാലിക്കുകയോ ചെയ്തിട്ടില്ല ആരിൽ നിന്നും ആരിലേക്കും രോഗം പകരാനുള്ള സാധ്യതയാണുള്ളത് അവരിൽ നിന്നും അവരുടെ കുടുംബാംഗങ്ങളിലേക്കും പകരാൻ സാധ്യതയുണ്ട് മുതിർന്നവർക്കും അസുഖമുള്ളവർക്കും കുട്ടികൾക്കും രോഗം ബാധിച്ചാൽ സ്ഥിതി അതിസങ്കീർണമാകും ദുരന്ത നിവാരണ നിയമമനുസരിച്ചും പകർച്ചവ്യാധി നിയന്ത്രണ നിയമമനുസരിച്ചും ഇത് കുറ്റകരവുമാണ് ജാഗ്രത പാലിച്ചില്ലെങ്കിൽ പോസിറ്റീവ് കേസുകളുടെ എണ്ണവും മരണനിരക്കും വൻ തോതിൽ വർധിക്കാൻ ഇടയുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി

നവജ്യോത് ഖോസ അറിയിച്ചു തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ ഖരമാലിന്യ സംവിധാനങ്ങൾ നേരിട്ടു പരിശോധിച്ച് ഗ്രേഡ് നൽകിയാണ് വിജയികളെ തെരഞ്ഞെടുക്കുക

സെപ്റ്റംബർ ഒന്നിനാണ് ശുചിത്വപദവി പ്രഖ്യാപനം നടക്കുക

മത്സ്യബന്ധത്തിനിടെ ഉണ്ടാവുന്ന അപകടങ്ങളിൽ അതിവേഗത്തിൽ അടിയന്തിര രക്ഷാപ്രവർത്തനം നടത്താൻ സഹായകരമാവുന്നതാണ് ആംബുലൻസ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ അദ്ധ്യക്ഷത വഹിക്കും കൊച്ചി കപ്പൽ ശാലയിലാണ് ചടങ്ങുകൾ നടക്കുക

ശൈലജ അധ്യക്ഷത വഹിക്കും മന്ത്രി എം

രാജു സംസ്ഥാനത്ത് കൂടുതൽ നഗരവനങ്ങൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി കെ രാജു ആലപ്പുഴയിൽ പറഞ്ഞു കാർബൺ ഡയോക്സൈഡ് ആഗിരണം ചെയ്ത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ലഘൂകരിക്കുകയാണ് ലക്ഷ്യം

അഞ്ച് സെന്റ് സ്ഥലമെങ്കിലും ലഭ്യമായ നഗരങ്ങളിൽ സ്വാഭാവിക ചെറുവനമാതൃകയിൽ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി അറിയിച്ചു

തീരദേശത്തെ വൃക്ഷസാന്ദ്രത വർധിപ്പിക്കുന്നതിന് ൂക്ടീർപ്പ്ധി പദ്ധതികൾക്ക് രൂപം നൽകിവരികയാണ് പുനർഗ്ഗേഷ്ട്ട് പദ്ധതിയിൽ ആളുകൾ മാറുന്നതനുസരിച്ച് തീരദ്ദേശ്രമേഖലയിൽ വൃക്ഷവൽക്കരണ പരിപാടികൾ വേഗത്തിലാക്കും

പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഹർജി പരിഗണിച്ച് തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് മണലെടുപ്പിൽ ക്രമക്കേടുണ്ടെന്നും അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വിജിലൻസിന് നേരത്തെ കത്തയച്ചിരുന്നു എന്നാൽ സർക്കാർ അനുമതി നിരസിച്ചതിനെതുടർന്നാണ് വിജിലൻസ് കോടതിയെ സമീപിച്ചത്

പട്ടികയിലുള്ള കീടനാശിനികളുടെ നിദ്ദ്രാധനം അപകടകരമായ പൂതിയ കീടനാശിനികളുടെ വർപ്പിനു കാരണമാകരുതെന്നും സംസ്ഥാനം ആവശ്യ മുന്നയിച്ചിട്ടൂണ്ട് പ്ര ബദലായി ശാസ്ത്രീയമായ്ട് നിയന്ത്രണ മാർഗ്ഗങ്ങൾ കർഷകർക്കു ലഭ്യമാക്കാസുക്ക് അതിനുള്ള സാങ്കേതിക സാമ്പത്തിക സഹായം നൽകണമെന്നു്ട് മന്ത്രി വി എസ് സുനിൽ കുമാർ ആവശ്യപ്പെട്ടു

സുധാകരൻ

വാഹനത്തിന്റെ സാധുവായ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് എന്നിവ ഹാജരാക്കേണ്ടതില്ല എന്നാൽ വാഹനം ഉപയോഗിച്ച ദിവസം വരെയുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവരിൽ നിന്നും പിഴ ഈടാക്കും

നിലവിൽ കോവിഡ് ചികിത്സയിലുള്ളവർ ഏഴ് ലക്ഷം പിന്നിട്ടു

സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചും പാർട്ടി കണ്ണൂർ ജില്ലാ കമ്മറ്റി കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി

പ്രതിഷേധ സമരം ബി ജെ പി സംസ്ഥാന വൈസ്സ് പ്രസ്മിഡന്റ് വി